ഇന്ത്യയുടെ നയതന്ത്രവിജയമാണ് അഭിനെന്ദ്രൻ വർദ്ധമാന്റെ മോചനമെന്ന് ബിജെപി ദേശീയഅധ്യക്ഷൻ അമിത്ഷാ ജമ്മു കശ്മീരിലെ ഉറി മേഖലയിൽ പീണ്ടും പാക്കിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനം വീഡിയോകോൺ വായ്പാ കേസിൽ ഐസിഐസിഐ ബാങ്ക് മുൻ മേധാവിയുടെയും വീഡിയോകോൺ ഉടമയു ടെയും ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ്

ലോകത്തിന്റെ കണ്ണുകൾ വാഗാ അതിർത്തിയിലേക്ക് പാകി സ്ഥാൻ പിടിയിലായ ഇന്ത്യയുടെ ധീര വൈമാനികൻ വിങ്ങ് കമാന്റർ അഭിനന്ദൻ വർദ്ധമാനെ ഉച്ച് കഴിഞ്ഞ് ഇന്ത്യക്ക് കൈമാ റും

അഭിനന്ദിനെ റാവൽപിണ്ടിയിൽ നിന്ന് വിമാനത്തിൽ ലാഹോറിലെത്തിച്ച ശേഷം റോഡ്മാർഗ്ഗമായിരിക്കും വാഗാ അതിർത്തിയിൽ എത്തിക്കുന്നത് രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനും മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരും അഭിനന്ദിനെ സ്വീകരിക്കാൻ വാഗാ അതിർത്തിയിൽ എത്തും

അൽപസമയത്തിനകം അഭിനന്ദിന്റെ പിതാവ ടക്കം കുടുംബാംഗങ്ങളും അതിർത്തിയിലെത്തും ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ വിജയമാണ് പാകി സ്ഥാൻ പിടിയിലായി മൂന്ന് ദിവസത്തിനകം തന്നെ അഭിനന്ദിന്റെ മോചനമുണ്ടാകുന്നത് ഉപാധിരഹിതമായി വൈമാനികനെ തിരികെ നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു

ഇതേ തുടർന്നാണ് അഭിനന്ദിനെ തിരികെ നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതമായത്

മിഗ് വിമാനം തകരുന്നതിന് മുൻപ് പാകിസ്ഥാന്റെ എഫ്പൂർ വിമാനം മിസൈൽ ഉപയോ ഗിച്ച് തകർക്കാനും അഭിനന്ദിന് കഴിഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തെ ഒരിക്കൽപോലും അപലപി ക്കാത്ത പാക്ക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഇന്ത്യ എങ്ങനെ വിശ്വസിക്കുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ചോദിച്ചു ഇതിൽ നിന്നു തന്നെ ഇമ്രാൻഖാനിൽ നിന്ന് കൂടുത ലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് വ്യക്തമായതായി അദ്ദേഹം പറ ഞ്ഞു ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് അഭിനന്ദൻ വർദ്ധമാനെ കൈമാറാൻ പാക്കിസ്ഥാനെ നിർബന്ധിതമാക്കിയത് ഏറ്റവും കുറഞ്ഞ സമയത്തിനകം തന്നെ അഭിനന്ദിനെ തിരികെ എത്തി ക്കാൻ വഴിയൊരുക്കിയത് ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാക്കിസ്ഥാൻ താവളമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘ ടനകളിൽ ഭീതി ജനിപ്പിക്കാൻ മോദി ഭരണകൂടത്തിനായെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ഇന്ത്യ ടുഡെ കോൺക്ലേവിൽ പറ ഞ്ഞു സ്വാതന്ത്യാനന്തര ഇന്ത്യയിൽ ഭീകരവാദികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് മോദി ഗവൺമെന്റാണെന്ന് അമിത്ഷാ വെളിപ്പെടുത്തി ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്ത കരെ ഇല്ലായ്മ ചെയ്തതും ഈ ഭരണകാലത്താണെന്ന് അമിത്ഷാ അറിയിച്ചു ഭീകരർക്ക് സുരക്ഷാപ്രദേശം ഒരുക്കുന്നതൂരി സാമ്പത്തിക സഹായമടക്കം ചെയ്യുന്നതും അവസാനിപ്പിക്ക്ാൻ പ്പാക്കിസ്ഥാൻ നടപടി സ്വീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു

പ പാക്കിസ്ഥാൻ കേന്ദ്രമാക്കിയ ഭീകരഗ്രൂപ്പിന്റെ ആക്രമണമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അമേരിക്ക കുറ്റപ്പെടു ത്തി പ്രധാനമന്ത്രി ന്റര്ന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിൽ അഞ്ച് ദേശീയപാതാ വികസ്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഇതിന് പുറമെ മധൂര ചെന്നൈ തേജസ് ട്രെയിനിന്റെ ഉദ്ഘാടനവും വീഡിയോ കോൺഫ്രൻസിംഗിലൂടെ അദ്ദേഹം കന്യാകുമാരി യിൽ നടത്തും പാർട്ടി ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കി ല്ലെന്ന് ബിജെപി തമിഴ്നാട് ഘടകം അറിയിച്ചു ജമ്മുകശ്മീരിലെ ഉറി മേഖലയിൽ വീണ്ടും പാകിസ്ഥാൻ ഷെൽ ആക്രമണം നടത്തി പ്രദേശവാസിക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിമുതലാണ് പാക്ക് സേന അക്രമണം ആരംഭിച്ചതെന്നും ശക്ത മായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചെന്നും സൈനിക വക്താവ് ശ്രീനഗറിൽ അറിയിച്ചു ജമ്മുകശ്മീർ കുപ്വാരയിലെ ഹന്ദാർ മേഖലയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരി ക്കുന്നുണ്ടെന്ന സന്ദേശത്തെ തുടർന്ന് തിരച്ചിൽ നടത്തിയ സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സൈനിക വക്താവ് ശ്രീനഗറിൽ അറിയിച്ചു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാക്ക് ചാരപ്രവർത്തകനെ അതിർത്തി സുരക്ഷാസേന അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് പാക് സിംകാർഡ് സഹിതമാണ് മൊറാദാബാദ് സ്വദേശി പിടിയി ലായത് ബിഎസ് എഫ് പോസ്റ്റുകളുടെ ചിത്രമെടുക്കാൻ ശ്രമി ക്കവെയാണ് അറസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഒ

വീഡിയോകോൺ കമ്പനിക്ക് ക്രമവിരുദ്ധമായി വായ്പ നൽകിയ കേസിൽ ഐസിഐസിഐ ബാങ്ക് മുൻ മേധാവി ഛന്ദ കൊച്ചാറിന്റെയും വീഡിയോകോൺ ഉടമ വേണുഗോ പാൽ ധൂതിന്റെയും ഓഫീസുകളിലും വീടുകളിലും എൻഫോ ഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് റെയ്ഡ് നടത്തി

സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ യാത്രയും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖലാ യാത്രയും നാളെ തൃശൂർ തേക്കിൻകാട് വിദ്യാർഥി കോർണറിൽ സംഗമിക്കുമെന്ന് സംഘാടകർ വാർത്തസ മ്മേളനത്തിൽ അറിയിച്ചു വൈകീട്ട് നാലിന് സമാപന സമ്മേ ളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജമ്മു കശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യം രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് സി പി ഐ സംസ്ഥാന ഉസ്ക്രിട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

അഭിപ്രായം പറയുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പാലക്കാട്ട് അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ ധാർമികത തകർക്കുന്ന പ്രചാരണം സാമൂ ഹ്യമാധ്യമങ്ങൾ നടത്തരുതെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വൃക്തമാക്കി ഇന്ത്യൻ ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അത് നിലവിലെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കണ്മെന്ന് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറ ഞ്ഞു സാമൂഹ്യമാധ്യമങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ അതത് സമയം പ്രവർത്തിക്കാൻ സന്നദ്ധത കാണിക്കണം പാക്കിസ്ഥാൻ പിടിയിലായ വ്യോമസേനാ കമാന്റർ അഭിനന്ദ് വർദ്ധമാനെക്കുറിച്ച് യു ട്യൂബിൽ വീഡിയോ പ്രദർശിപ്പിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം സബ്സിഡി പാചകവാതക സിലിണ്ടറിന്റെ വില രണ്ട് രൂപ എട്ട് പൈസ വർദ്ധിപ്പിച്ചു

മൂന്ന് മാസത്തെ തുടർച്ച യായ വിലക്കുറവിന് ശേഷമാണ് സിലിണ്ടർ വില വർദ്ധിക്കു ന്നത്

വിമാനത്താവള സ്വകാര്യവത്കരണത്തിന് പിന്നിൽ ഒത്തുകളിയാണ് വിമാനത്താ വളം ഏറ്റെടുത്ത് നടത്താമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയി ച്ചിരുന്നതാണെന്ന് കോടിയേരി എറണാകുളത്ത് പറഞ്ഞു കേരളത്തിന്റെ പിന്തുണയില്ലാതെ വിമാനത്താവളത്തിലെ പ്രവർത്തനം നടത്താമെന്ന് കേന്ദ്രഗവ

അട്ടപ്പാടി മേഖലയിലെ കുടിപ്പെള്ള പ്രശ് നം പരിഹാരിക്കുന്നതിനായി നടപ്പാക്കുന്ന് അട്ടപ്പാടി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട് നിർമാണോദ്ഘാടനം മന്ത്രി കെ

പതിനായിരത്തോളം കോടി രൂപ യുടെ പദ്ധതികളാണ് ഈ കാലയളവിൽ ആരംഭിച്ചതെന്ന് അദ്ദേഹം ഇടുക്കി വെള്ളിയാമറ്റം കോളനിയിൽ പറഞ്ഞു തടി യനാൽ അംബേദ്ക്കർ സെറ്റിൽമെന്റ് വികസന പദ്ധതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി അംഗൻവാടികളെ ഹൈടെക്കാക്കി പ്രീസ്കൂൾ തലത്തി ലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി കെ

സ്ത്രീകളി ലേയും കുട്ടികളിലേയും പോഷണ കുറവ് പരിഹരിക്കുന്ന സമ്പുഷ്ട കേരളം പദ്ധതി കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി കണ്ണൂർ കാസർകോട് വയനാട് മലപ്പുറം ജില്ല കളിലാണ് ഇത് നടപ്പാക്കുന്നത് മുലയൂട്ടൽ വ്യാപിപ്പിക്കാനും അമിത വണ്ണം തടയാനും കൂടി ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് സമ്പുഷ്ട കേരളം പദ്ധതി നടപ്പാക്കുന്നത് ലോക്സഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് യു ഡി എഫിൽ കോൺഗ്രസ് മുസ്തീംലീഗ് ഉഭയകക്ഷി ചർച്ച ഇന്ന് കോഴിക്കോട്ട് നടക്കുമെന്ന് റിപ്പോർട്ട് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ വൈകീട്ട് യോഗത്തിൽ പങ്കെടൂക്കും മുസ്സീംലീഗുമായി കോൺഗ്ര സിന്റെ രണ്ടാമത്തെ ഉഭയകക്ഷി ചർച്ചയാണിത് ഐഎസ്എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും കൊച്ചിയിൽ രാത്രി ഏഴിനാണ് മത്സരം നെടുമ്പാശ്ശേരിയിൽ അനധികൃത സ്വർണം കടത്താൻ ശ്രമിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പിടിയിലായി വിദേശത്ത് നിന്നെത്തിയ മൂവാറ്റുപുഴ് സ്വദേശി ശുചിമുറിയിൽ ഉദ്യോഗസ്ഥന് കൈമാറു ന്നതിനിടെയാണ് ഹവിൽദാർ സുനിൽ ഫ്രാൻസിസ് പിടിയിലാ യത് മൂന്ന് കിലോഗ്രാം സ്വർണബിസ്കറ്റും ഡിആർഐ അധികൃ തർ പിടിച്ചെടുത്തു കാലിക്കറ്റ് സർവ്വകലാശാലയിലേക്ക് എം എസ് എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം

സി സോൺ കലോത്സവത്തിനിട യിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്

തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് ബംഗ്ലാവിൽ നടന്ന സമാ പന പരിപാടി എ എൻ ഷംസീർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു

തീ പിടുത്തെ തുടർന്ന് നിർത്തിവെച്ച ബ്രഹ്മപുരം മാലി ന്യപ്പാന്റിന്റെ പ്രവർത്തനം ബുധ്യനാഴ്ചയോടെ പുനരാരംഭിക്കു മെന്ന് കൊച്ചി മേയർ സൌമിനി ജയ്ൻ അറിയിച്ചു കഴിഞ്ഞ ആറ് ദിവസമായി കൊച്ചിയില്ലെ മാ്ലിന്യ നീക്കം തടസ്സപ്പെട്ടിരി ക്കുകയാണ് മാലിന്യ പ്ലാന്റിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പുരോ ഗമിക്കുകയാണെന്ന് മേയർ വ്യക്തമാക്കി